കഴിഞ്ഞ അഞ്ച് വർഷം വിവിധ മേഖലകളിലുമുള്ളവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് പുതിയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്മാർട്ട് ഇന്ത്യ ഹാക്കുത്തോണിന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ സംസാരിക്കുകയായിരുന്നു് പ്രധാനമന്ത്രി

വിദ്യാർത്ഥികളുടെ താൽപ്പര്യത്തിനനുസൃതമായി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റുകയാണ് പുതിയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ഏത് ശ്രേണിയിൽ നിന്നും വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയും

ലോകമാനൃ തിലകിന്റെ ധൈര്യവും നീതിബോധവും സ്വരാജ് എന്ന ആശയവും ഇന്നും രാജ്യത്തെ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു

ഉത്പാദനം വർധിപ്പിക്കുന്നതിനായി അവതരിപ്പിച്ച ഉത്തേജക പദ്ധതികൾക്ക് ഊഷ്മളമായ പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രി രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു വിശദാംശങ്ങളുമായി ജോസ്ന

ഇലക്ട്രോണിക്സ് ഉത്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ലോക നേതൃത്വം ഏറ്റുടുക്കാനുള്ള ശേഷി ഇന്തൃയ്ക്കുണ്ടെന്നും ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ആത്മ നിർഭർ ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ഗ്രാമീണ ഇന്ത്യയും കാർഷിക സമൂഹവും സുപ്രധാന പങ്ക് വഹിക്കുമെന്നും ശ്രീ തോമർ പറഞ്ഞു

സംസ്ഥാനത്തിനകത്തെ യാത്രകൾക്കും അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് ആരോഗ്യ മന്ത്രാലയം ബുധനാഴ്ച പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്

ദൌത്യത്തിന്റെ ഭാഗമായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്ന് ദുബായിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം എത്തുന്നുണ്ട്

വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം

മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി കോയാമു എറണാകുളം ആലുവ സ്ഥാനങ്ങൾ സ്ഥാപിക്കുളം സ്വദേശി എയ്ഞ്ചൽ കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി അബ്ദുൾ റഹ്മാൻ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബാബു കോഴിക്കോട് ബിച്ച് സ്വദേശി നൌഷാദ് കൊല്ലം ജില്ലയിലെ അസുമാ ബീവി തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി ചന്ദ്രൻ എന്നിവരുടെ മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു

ചൊവ്വാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപംകൊള്ളാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു

ജെ

നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഒ രാജഗോപാൽ എം

ജെ

ദേശീയ ജനറൽ സെക്രട്ടറി ഭൂപേന്ദ്ര യാദവ് എം

ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരമുല്ല പാകം ചെയ്ത ഭക്ഷണത്തിന് പകരമായി എല്ലാ കുട്ടികൾക്കും ഇവ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് പറഞ്ഞു